ജെ

അടുത്ത പത്ത്ദിവസം ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിക്കും നിരോധനാജ്ഞയെത്തുടർന്ന് മംഗളുരുവിൽ കുടുങ്ങിയ ഇരുനൂ റോളം വിദ്യാർഥികളെ സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് കേരളത്തി ലെത്തിച്ചു നിർമിത ബുദ്ധിയടക്കം പുതിയ സാങ്കേതികവിദ്യകൾ ഉന്നതവിദ്യാ ഭ്യാസ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ട് ഇന്നലെ അന്തരിച്ച പ്രശസ്ത ഛായാഗ്രാഗകൻ രാമച ന്ദ്രബാബുവിന്റെ സംസ്കാരം വൈകിട്ട് തിരുവനന്തപുരം ശാന്തിക വാടത്തിൽ ഇന്ത്യ വെസ്റ്ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് കട്ടക്കിൽ

എസ് എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ് സി

മത്സരം സമനിലയിൽ പിരിഞ്ഞു പൌരത്വഭേദഗതിനിയമം സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരി ക്കാനും പ്രതിപക്ഷത്തിന്റെ വ്യാജ പ്രചാരണങ്ങൾ തടയാനും ബി ജെ

രാജ്യവ്യാപകമായി ജനസമ്പർക്കപരിപാടി നടത്തും പാർട്ടി വർക്കിങ് പ്രസി ഡന്റ് ജെ

നദ്ദയുടെ അധ്യക്ഷതയിൽചേർന്ന യോഗത്തിലാണ് തീരുമാ നമെടുത്തത്

ജെ

എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും റാലികളും പ്രത്യേക വാർത്താ സമ്മേളനങ്ങളും സംഘടിപ്പിക്കുമെന്ന് ബി ജെ

ജന റൽ സെക്രട്ടറി ഭുപേന്ദർ യാദവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും പൌരത്വനിയമഭേദഗതിയിൽ തെറ്റിദ്ധാരണകളും വ്യാജ വിവരങ്ങളും പ്രചരിപ്പിക്കുകയാണെന്ന് ഭുപേന്ദർ കുറ്റപ്പെടുത്തി

വർഗീയ അരാജകത്വ പ്രചാരണങ്ങളിൽ കുടുങ്ങരുതെന്ന് അവർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഭയത്തിന്റെയും ആശങ്കയുടെയും സാഹചര്യമുണ്ടാക്കി ജന ങ്ങളെ കലാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യം രാജ്യത്ത് പലയിടത്തും നിലനിൽക്കുന്നതായി അവർ വിലയിരുത്തി പാകിസ്താൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്താൻ എന്നിവിടങ്ങളിലെ മതന്യൂനപ്പക്ഷ അഭയാർഥികൾക്ക് പൌരത്വം നൽകണമെന്ന ആവശ്യം പൂർത്തീകരിക്കുന്നതാണ് ഭേദഗതി നിയ മമെന്ന് അവർ പറഞ്ഞു

ഐ എം ഷില്ലോങ് ചെയർമാൻ ശിശിർ ബജോ ഡിയ നളന്ദ സർവകലാശാല വൈസ് ചാൻസിലർ സുനൈന സിങ് ജെ

പ്രൊഫസർ അയിനുൾ ഹസ്സൻ തുടങ്ങിയവർ പ്രസ്താവന ഒപ്പി ട്ടവരിൽ ഉൾപ്പെടുന്നു വിദ്യാർഥികളുടെ സോഷ്യൽമീഡിയ പോസ്റ്റുകളും പൌരത്വ നിയമഭേ ദഗതി പ്രതിഷേധങ്ങളും നിരീക്ഷിക്കാൻ ഐ ഐ

കളോടും ഐ

ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും മാധ്യമ ങ്ങളിൽവന്ന വാർത്തകൾ ശരിയല്ലെന്ന് മന്ത്രാലയം ടിറ്ററിൽ അറിയിച്ചു ദേശീയ പൌരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് സോഷ്യൽമീഡിയ വഴി വ്യാജവാർത്തകൾ പ്രചരിപ്പി ക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് വാർത്താകുറിപ്പിൽ അറിയിച്ചു ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും സൈബർ സെല്ലും നിരീക്ഷണം ശക്തമാക്കി വ്യാജവാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു നിരോധനാജ്ഞയെത്തുടർന്ന് മംഗളുരുവിലും ദക്ഷിണ കന്നഡയിലും കുടുങ്ങിയ ഇരുനൂറോളം വിദ്യാർഥികളെ സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് കേരളത്തിലെത്തിച്ചു അഞ്ച് കെ എസ് ആർ ടി സി

ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ മധുരം നൽകി വരവേറ്റു മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക ഗവൺമെന്റുമായി നടത്തിയ ചർച്ചയെത്തുടർന്നാണ് നാട്ടിലെത്താൻ കഴിയാതിരുന്ന വിദ്യാർഥി കളെ പ്രത്യേക ബസ്സുകളിൽ കൊണ്ടുവന്നത് കോഴിക്കോട് ഹെഡ്പോസ്റ്റോഫീസ് ഉപരോധത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ അറസ്റ്റിലായ ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദീഖ് ഉൾപ്പടെ നേതാക്കളേയും പ്രവർത്തകരെയും കോടതി റിമാൻഡ് ചെയ്തു ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗ മായാണ് ഡി സി സി സമരം സംഘടിപ്പിച്ചത് നിർമിത ബുദ്ധിയടക്കം പുതിയ സാങ്കേതികവിദൃകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരുത്തുമെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇത്തരം വൃവിസായങ്ങൾക്ക് യോഗൃ രായവരെ ലഭ്യമാക്കാൻ നടപടി സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രതിമാസ ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിൽ അറിയിച്ചു

ഗവൺമെന്റ് സേവനങ്ങളിൽ വിവരസാങ്കേതികവിദൃയുടെ സാധൃത കൾ ഗവൺമെന്റ് പ്രയോജനപ്പെടുത്തിവരികയാണെന്ന് മുഖൃമന്ത്രി പറഞ്ഞു

പ്രശസ്ത ഛായാഗ്രാഹകൻ രാമചന്ദ്രബാബു കോഴിക്കോട്ട് അന്തരിച്ചു

സിനിമ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ലൊക്കേഷൻ പരിശോധിക്കാൻ കോഴിക്കോട്ട് എത്തിയപ്പോൾ അസ്വാസ്ഥ്യം അനുഭവപ്പെട്ട അദ്ദേഹത്തെ ആശു പത്രിയിൽ എത്തിക്കുകയായിരുന്നു മലയാള സിനിമയുടെ സാങ്കേതിക മുന്നേറ്റത്തിലെ അമരക്കാരിൽ ഒരാളായിരുന്നു രാമചന്ദ്രബാബു

നാലു തവണ മികച്ച ഛായാഗ്രാഹകൻ എന്ന നിലയിൽ സംസ്ഥാന പുരസ്കാരം നേടി ദ്വീപ് രതിനിർവേദം ചാമരം ഒരു വടക്കൻ വീരഗാഥ എന്നീ ചിത്രങ്ങളാണ് സംസ്ഥാന പുരസ്കാരത്തിന് അർഹമായത് ദിലീപിനെ കേന്ദ്രക ഥാപാത്രമാക്കിയ പ്രഫസർ ഡിങ്കൻ എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം സംവിധാനത്തിലേക്കും ചുവടുവച്ചിരുന്നു

മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി അറബി ഇംഗ്ലീഷ് ചിത്രങ്ങൾക്കും അദ്ദേഹം ഛായാഗ്രഹണം നിർവഹിച്ചു

സംസ്കാരം വൈകിട്ട് തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ നടത്തും ശബരിമല യുവതീപ്രവേശന വിഷയത്തിൽ റിവ്യൂഹർജികൾ സുപ്രീം കോടതിയുടെ വിശാലബെഞ്ച് ജനുവരിയിൽ പരിഗണിച്ചേക്കും സുപ്രീം കോടതി രജിസ്ട്രി ഹർജികളുടെ നാല്സെറ്റ് രേഖകൾകൂടി സമർപ്പിക്കാൻ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് നൽകി ക്രിസ്മസ് അവധിക്കുശേഷം ജനുവരി ആറിനാണ് സുപ്രീംകോടതി തുറക്കുന്നത് കോഴിക്കോട് ജില്ലാതല പട്ടയമേള രാവിലെ ടൌൺ ഹാളിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രി ടി പി രാമകൃഷ്ണൻ അധ്യക്ഷനായിരിക്കും

എസ് എൽ ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ് സി

ഇന്ന് ഗോവയിൽ എഫ്

ഗോവ ഒഡീഷ എഫ്

യെ നേരിടും

ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസി ഡന്റ് ഒ രാജഗോപാൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും എറണാകുളം ജില്ലയിലെ ബീച്ച് ഗെയിംസിനും കാർണിവലിനും ഇന്ന് പുതുവൈപ്പിനിൽ തുടക്കമാകും തീരമേഖലയിലെ കായിക ടൂറിസം വിക സനം ലക്ഷ്യമിട്ട് എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിലാണ് പരി പാടി സംഘടിപ്പിക്കുന്നത് ജനുവരി ഒന്നുവരെ കാർണിവൽ തുടരും സ്പോർട്സ് കൌൺസിലിന്റെയും കായിക വകുപ്പിന്റെയും ആഭിമുഖ്യ ത്തിൽ ചാവക്കാട് ബീച്ച് ഗെയിംസിന് തുടക്കമായി ഇന്ന് വൈകിട്ട് സമാ പിക്കും അന്തർദേശീയ കരാറുകൾ പലതും സംസ്ഥാനത്തിന്റെ കാർഷിക മേഖ ലയെ തകർക്കുന്നതാണെന്ന് മന്ത്രി കെ രാജു പറഞ്ഞു തലയോലപ്പറമ്പിൽ കോട്ടയംജില്ല ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രാഷ്ട്രമാണ് പ്രധാനം രാഷ്ട്രീയ മുതലെടുപ്പല്ല എന്ന സന്ദേശവുമായി കോഴിക്കോട്ട് എ

വി

സ്വാഭിമാനറാലി നടത്തി

ബി വി

സംസ്ഥാന സെക്രട്ടറി എം

ഷാജി റാലിയുടെ സമാപനസമ്മേളനം ഉദ്ഘാടനം ചെയ്തു മത സമന്യ വിദ്യാഭ്യാസം സമുദായത്തിന്റെ ഉണർവിന് അനിവാര്യ മാണെന്ന് മുസ്ലിംലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദ രലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കോഴിക്കോട് കാപ്പാട് ഐനുൽഹുദാ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ജനതാദൾ എസുമായി ലയന സാധ്യത ചർച്ച ചെയ്തതായി ലോക് താന്ത്രിക് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് എം

ശ്രേയാംസ്കുമാർ കോഴിക്കോട്ട് അറിയിച്ചു മുഴുവൻ പാർടി ഘടകങ്ങൾക്കും യോജിപ്പാണെങ്കിൽ ലയന സാധ്യത ആരായാൻ സംസ്ഥാ നകമ്മിറ്റി സമിതിയെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു

വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് ഉത്തരമേഖലാ ഡെപ്യൂട്ടി കൺട്രോളർ അറിയിച്ചു

കൊച്ചിമെട്രോ വിദ്യാർഥികൾക്കായി കൊച്ചി വൺ കാർഡ് പുറത്തിറ ക്കി

ആക്സിസ് ബാങ്കുമായി സഹകരിച്ചാണ് കെ എംആർ എൽ ഈ സംവി ധാനം ഒരുക്കുന്നത് വികലാംഗ പെൻഷൻ ഉൾപ്പെടെ എല്ലാ ക്ഷേമ പെൻഷനുകളും കുടി ശ്ശികയില്ലാതെ ക്രിസ്തുമസിന് മുമ്പായി വിതരണം ചെയ്യണമെന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈന്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ലോട്ടറിയുടെ ജി

നിരക്ക് വർധന തീരുമാനം പിൻവലിക്കണമെന്നും ഫെഡറേഷൻ ആവശ്യപ്പെട്ടു അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മറ്റിയുടെ പത്താം വാർഷികവും റേഡിയോ ശ്രോതാക്കളുടെ സുഹൃദ് സംഗമവും ഇന്ന് രാവിലെ ബക്കളത്ത് നടക്കും